മലയാളികൾ

ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നത്തെയും നാളെ ഉണ്ടാകാനിടയുള്ള വെല്ലുവിളികളെയും പരിഗണിക്കാവുന്ന തരത്തിലുള്ള വ്യവസ്ഥ രൂപീകൃതമാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം എടുത്തുപറഞ്ഞു

പാവപ്പെട്ടവനെയും ആവശൃക്കാരനെയും സഹായിക്കുക എന്ന സന്ദേശമാണ് റംസാൻ നല്കുന്നതെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു കേരളത്തിൽ റംസാൻ വ്രതാചരണത്തിന് ഇന്നലെ തുടക്കമായിരുന്നു

മഹാരാഷ്ട്ര കർണാടക ഛത്തീസ്ഗഡ് ഡൽഹി തമിഴ്നാട് ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഗുജറാത്ത് കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

സാമ്പത്തികരംഗം പൂർണ്ണമായും മരവിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി പ്രാദേശിക തലത്തിൽ ഐസൊലേഷൻ കാറന്റൈൻ നടപടികളിലൂടെ കോവിഡ് രണ്ടാം തരംഗം നേരിടാനാണ് ശ്രമിക്കുന്നതെന്നും ശ്രീമതി നിർമ്മലാസീത്യാരാമൻ പറഞ്ഞു വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് ഡേവിഡ് മൽപ്പിന്നു്മായി ഇന്നലെ നടത്തിയ വിർച്ചൽ യോഗത്തിലാണ് മൃത്തിച്ച ഇ്ക്കാര്യം വ്യക്തമാക്കിയത് കോവിഡ് വാക്സിനേഷൻ സാമ്പിത്തിക പുനരുജ്ജീവനം വേൾഡ് ബാങ്ക് ഇന്ത്യക്ക് നൽകുന്ന് പായ്പാ പദ്ധതികൾ എന്നിവയെപ്പറ്റി ഇരുവരും യോഗത്തിൽ ചൂർച്ച് ചെയ്തു

വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് സംസ്ഥാന ഗവർണ്ണർമാരുമായും ലഫ്റ്റനന്റ് ഗവർണർമാരുമായും വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തും

അടിയന്തര സാഹചര്യങ്ങളിൽ വിദേശ വാക്സിനുകൾക്ക് അനുമതി നൽകുന്ന പ്രക്രിയ വേഗത്തിലാക്കിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

വിശദാംശങ്ങളുമായി സീനാ ആന്റണി

സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നിയമ നീതിന്യായ മന്ത്രിയായ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിൽ മുഖ്യപങ്കു വഹിച്ചു മരണാനന്തരം പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു കടുത്ത പ്രതിസന്ധികൾക്കിടയിലും അതുല്യപാത തീർത്ത അസാധാരണ വ്യക്തിത്വവും ബഹുമുഖ പ്രതിഭയുമാണദ്ദേഹമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു രാജ്യത്തെ പിന്നാക്ക വിഭാഗത്തിന്റെ വിദ്യാഭ്യാസത്തിനും സാമൂഹിക ഉന്നമനത്തിനുമായി ബഹിഷ്കൃത ഹിതകാരിണി സഭ അദ്ദേഹം രൂപീകരിച്ചു എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കുന്ന ഒരു സമൂഹം വിഭാവനം ചെയ്ത അംബേദ്കർ അതിനായി അഹോരാത്രം പരിശ്രമിക്കുകയും പോരാടുകയും ചെയ്തു എന്നും ര്യൂഷ്ട്രപതി അനുസ്മരിച്ചു

അംബേദ്കറിന്റെ ആദർശങ്ങൾ ഉൾപ്പ്കൊണ്ട് ഭാവി ഇന്ത്യയെ പടുത്തുയർത്താൻ ഓരോരുത്ത്രുപ്പ് മുന്നോട്ടു വരണമെന്നും ശ്രീരാംനാഥ് കോവിന്ദ് ആഹ്വാന്യം ചെയ്തു

ന്യൂഡൽഹിയിൽ ട്യൂബർകുലോസിസ് ടെക്നിക്കൽ കൺസൾട്ടന്റ് നെറ്റ്വർക്ക് സംഘവുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കോവിഡ് മഹാമാരിക്കിടയിലും ഐശ്വരൃപൂർണമായ ഭാവിയിലേക്ക് കണ്ണുംനട്ടാണ് ഇന്ന് മലയാളികൾ കണികണ്ടത്

കാർഷിക കലണ്ടർ പ്രകാരം മേടം പിറക്കുന്ന വിഷു പുതുവർഷമാണ് തിന്മയുടെ മേൽ നന്മ കൈവരിച്ച ആതൃന്തികവിജയത്തെ അനുസ്മരിക്കുന്ന മറ്റൊരു ഐതിഹൃവും ആഘോഷവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്

പ്രപ്ധാന്മന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയുമുൾപ്പെടെയുള്ളൂ പ്രമുഖർ എല്ലാ മലയാളികൾക്കും വിഷു ആശംസകൾ നേർന്നു്

കഴിഞ്ഞ ശനിയാഴ്ച നാലാംഘട്ട വോട്ടെടുപ്പിനെ തുടർന്നുണ്ടായ അക്രമസംഭവങ്ങളാണ് അഞ്ചാംഘട്ടത്തിന്റെ പരസൃപ്രചരണം വെട്ടിച്ചുരുക്കുന്നതിലേയ്ക്ക് നയിച്ചത്

അതേ സമയം അഞ്ചാംഘട്ട തെരഞ്ഞെടുപ്പിനുളള പ്രചരണം ഊർജ്ജിതമായിരിക്കുകയാണ്

പശ്ചിമ ബംഗാളിൽ എട്ട് ഘട്ടങ്ങളിലായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി നാല് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പാണ് ശേഷിക്കുന്നത്

പഞ്ചായത്തുകളുടെ പട്ടിക ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലും പ്രസിദ്ധീകരിക്കും

ഇന്നത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും